ദേശീയ ്നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രണ്ടു ദിവസത്തെ പ്രചാരണത്തിനെത്തി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മറ്റന്നാൾ വീണ്ടുമെത്തും

സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോളിൽ പഞ്ചാബിനും കർണാ ടകയ്ക്കും ജയം ള ൽ ൾ സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് ഒരാഴ്ച്ചമാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിലായി കനത്ത വേനൽചൂടിനെ വെല്ലും വിധം നാടും നഗരവും ഇളക്കിമറിച്ച പ്രചാരണമാണ് എല്ലായിടങ്ങളി ലും ഓരോ വോട്ടും നിർണായകമായ തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് സ്വന്തം ചിഹ്നത്തിൽ ഉറപ്പാക്കുന്നതിന് ഏതടവും പയറ്റുന്ന കാഴ്ച്ചയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നത് ആവനാഴിയിലെ അവസാന അസ്ത്രവും എതിരാളിക്കെതിരെ പ്രയോഗിക്കുന്ന നാളു കളാണ് വരാനിരിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങളും വാഗ്ദാ നങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കാനായി ഉപയോഗപ്പെടുത്തുന്നു ണ്ട്

മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇവരോടൊപ്പം പ്രചാരണത്തിൽ മുന്നേറുന്നുണ്ട് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ചൂട് ഉച്ചസ്ഥായിയിലെത്തിക്കാൻ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ രംഗത്ത് സജീവമാ ണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രണ്ട് ദിവസത്തെ പ്രചാരണത്തിനായി ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തി

ഒരു മണിക്ക് അന്തരിച്ച കേരളാ കോൺഗ്രസ് എം നേതാവ് കെ

മാണിയുടെ പാലായിലെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അനുശോചനം അറി യിക്കും വൈകീട്ട് നാലിന് ആലപ്പുഴയിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെ ടുപ്പ് യോഗത്തിൽ പങ്കെടുക്കും ആറിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യുഡിഎഫ് പ്രചാരണ യോഗത്തിലും അദ്ദേഹം പ്രസംഗിക്കും രാത്രി കണ്ണൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി നാളെ രാവിലെ യുഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കും പിന്നീട് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും

തിരുവനന്തപുരത്ത് വൈകീട്ട് എൻഡിഎ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും വയനാട് പൂൽപ്പള്ളിയിൽ ശനിയാഴ്ച്ച നടക്കുന്ന യു

എഫ് അനുകൂല കർഷക സംഘടനകളുടെ കർഷക സംഗമത്തിൽ എ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും ദേശീയ സംസ്ഥാന നേതാക്കളും സംഗമത്തിൽ എത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിക്കും സമാജ്വാദി പാർട്ടി നേതാവ് അസംഖാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണ വിലക്കേർപ്പെടുത്തി പ്രകോപനപരമായ വർഗീയ പരാ മർശങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പ് രംഗത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാണ് ഇരു നേതാക്കൾക്കും പ്രചാരണ വിലക്കേർപ്പെടുത്തി യത്

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ബിഎസ്പി അധ്യക്ഷ മായാവതിക്കും സമാനമായ വിലക്ക് കമ്മീഷൻ ഏർപ്പെടു ത്തിയിരുന്നു ഇന്ന് രാവിലെ ആറുമണി മുതൽ വിലക്ക് നിലവിൽ വന്നു

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി കോൺഗ്രസ് സ്വാഗതം ചെയ്തു ജനങ്ങളെ വിഭജിച്ച് തെരഞ്ഞെടുപ്പ് രംഗം മലീമസമാക്കാൻ ശ്രമിക്കുന്ന വിദ്വേഷ പ്രചാരകർക്ക് കമ്മീഷൻ നടപടി വിരാമമിടു മെന്ന് പ്രതീക്ഷിക്കുന്നതായി പാർട്ടി വക്താവ് അഭിഷേക് സിങ്വി ന്യൂഡൽഹിയിൽ പറഞ്ഞു

തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ വിദ്ധേഷ പ്രസംഗങ്ങൾ കൈകാരൃം ചെയ്യുന്നതിന് നിയമപരമായി പരിമിത അധികാരങ്ങൾ മാത്രമാണുള്ളതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം പരിശോധി ക്കാൻ സുപ്രീം കോടതി കമ്മീഷനിലെ ഉന്നതനെ വിളിച്ചുവരുത്തി

നോട്ടീസ് അയച്ച് വിശദീകരണം തേടാനല്ലാതെ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാനോ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം റദ്ദാ ക്കാനോ കമ്മീഷന് കഴിയില്ലെന്ന് കമ്മീഷന്റെ അഭിഭാഷകൻ കോട തിയെ അറിയിച്ചിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയേക്കും ഡിഎംകെ സ്ഥാനാർത്ഥിയുടെ ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സാഹച ര്യത്തിലാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം റദ്ദാക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുന്നതെന്ന് കമ്മീഷൻ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

പാർട്ടി ജനറൽ സെക്ര ട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ടാണ് പരാതി സമർപ്പിച്ചത് ഈസ്റ്റ് ത്രിപുര ലോക്സഭാ മണ്ഡലത്തിൽ മറ്റന്നാൾ നടക്കുന്ന രണ്ടാംഘട്ട വോട്ടെ ടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവുമാകാൻ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു

കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലാണ് പ്രതിനിധി സംഘം കമ്മീഷനെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചത്

അസം ബീഹാർ ചത്തീസ്ഗഡ് ജമ്മുകശ്മീർ മണിപ്പൂർ ഒഡീ ഷ ത്രിപുര എന്നിവയാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ

സന്തോഷ് ട്രോഫി ദേശീയ ഫൂട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പഞ്ചാബ് മറുപടിയില്ലാത്ത ഒരു ഗോളിന് സിക്കിമിനെ തോൽപ്പിച്ചു ഇതോടെ മൂന്ന് കളികളിൽ നിന്ന് പഞ്ചാബ് ആറ് പോയിന്റ് നേടി മറ്റൊരു മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് കർണാ ടക അസമിനെ തോൽപ്പിച്ചു അസമിന്റെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത് ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈയിൽ മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റിന് ബംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചു മുംബൈയുടെ അഞ്ചാം ജയമാണിത്

ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും

ഇക്കാര്യം അന്വേഷിക്കുകയാണെന്നു എക്സൈസ് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ഭരണഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് വി

സുധീരൻ പറ ഞ്ഞു പത്തനംതിട്ട കോഴഞ്ചേരിയിൽ യുഡിഎഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നരേന്ദ്ര മോദിക്കും അമിത്ഷാക്കും ഒപ്പം ചേർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി

എം സ്പ്സ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രപ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതുമെന്ന് മുൻ കെ

അധ്യക്ഷൻ എം

മോദിക്കും അമിത് ഷാക്കും വലിയ പിന്തുണയാണ് സി

എം നൽകുന്നതെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ ആരോപിച്ചു രാഷ്ട്രീയത്തിന്റെ പേരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നട പ്പിലാക്കുന്നതിൽ കേരളത്തിലെ ഇരുമുന്നണികളും കാട്ടിയ നിസ്സം ഗത ജനവഞ്ചനയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി യംഗം വി മുരളീധരൻ എം

പറഞ്ഞു പത്തനംതിട്ട തിരുവല്ലയിൽ എൻഡിഎ യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളാ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മറ്റി യുടേയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടേയും ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കാഴ്ചയില്ലാത്ത വോട്ടർമാർക്ക് വിവി പാറ്റ് മെഷീൻ ഉപ യോഗിച്ച് പരസഹായം കൂടാതെ വോട്ടു രേഖപ്പെടുത്താൻ ഇന്ന് പരി ശീലനം നൽകും

തെരെഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ എത്തിയ ഒരു കമ്പനി കേന്ദ്രസേനയെ അട്ടപ്പാടി മേഖലയിൽ നിയമിച്ചു മാവോയിസ്റ്റ് സാന്നിധ്യം സംശയിക്കുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി

സമ്മതിദായകർക്കായി ഓൺലൈൻ വോട്ടർ ക്വിസ്റ്റ് പോഗ്രാം ഇടുക്കി ജില്ലയിൽ തയ്യാറാക്കി

രാജ്യത്ത് കാലവർഷം ഇത്തവണ സാധാരണ തോതിലായിരിക്കു മെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ന്യൂഡൽഹിയിൽ അറിയി ച്ചു

രമേശ് പറഞ്ഞു പാലക്കാട് ജില്ലയിൽ വേനൽ കടുത്ത് സാഹചര്യത്തിൽ വിട്ടു നൽകാൻ ഡാമുകളിൽ അധിക് ജലം ഇല്ലാത്തിനാൽ തടയണകളിലെ ജലശേഖരം സംരക്ഷിക്കണമെന്നു ജലവിഭവ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സാമൂഹിക വിരുദ്ധർ ജലം ഒഴുക്കി കളയാൻ സാധ്യത കണക്കിലെടുത്തു തടയണ കൾക്ക് സംരക്ഷണം ഒരുക്കാൻ പൊലീസ് സഹായവും ആവശ്യപെട്ടിട്ടുണ്ട് ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴ ഡാമിൽ നിന്ന് ആദ്യ ഘട്ടത്തിൽ ഭാരതപുഴയിലേ തടയണകളിലേക്കു രണ്ടര ദശ ലക്ഷത്തോളം ഘനയടി വെള്ളം തുറന്നു വിട്ടിരുന്നു വേനൽച്ചൂടിനിടയിലും കേരളത്തിലെയും തമിഴ്നാട്ടി ലെയും ആയിരങ്ങളെ ആകർഷിക്കുകയാണ് തേക്കടി പുഷ്പമേള

കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ ഇടുക്കിയിലെ എഴുകുംവയൽ കുരിശുമലയിലേക്ക് വൻ തീർത്ഥാടകപ്രവാഹം നോമ്പുകാലം ആരംഭിക്കുന്നതു മുതൽ ആയിരക്കണക്കിനു തീർത്ഥാടകർ ഇവിടെ കുരിശുമല കയറാനെത്തുന്നു നോമ്പിന്റെ അവസാന ആഴ്ചയിലാണ് കൂടുതൽ വിശ്വാസികൾ മല കയറുന്നത്

ഇന്നലെ അന്തരിച്ച തന്ത്രി അമ്പലപ്പുഴ പുതുമന ശ്രീധരൻ നമ്പൂ തിരിയുടെ സംസ്കാരം ഇന്നുച്ചയ്ക്ക് നടക്കും